വിഭാഗങ്ങളുടെ പരിശീലനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഏഴിമല നാവിക ആർക്കാദമിക്ക് രാഷ്ട്രപതി പ്രസിഡന്റസ് കളർ അവാർഡ് റ്സ്മ്മാനിച്ചു പൊലീസ് ലാത്തിച്ചാർജിൽ എം

പരിക്കേറ്റ സംഭവൃത്തിൽ് നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസ്ട് സ്തംഭിപ്പിച്ചു വീഴ്ച വരുത്തിയ് പൊലീസുകാർക്ക് എതിരെ നടപടി ന് സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ

തിരിതെളിഞ്ഞു

ഏഴിമല നാവിക അക്കാദമിക്ക് പ്രസിഡന്റസ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് നമ്മുടെ സൈന്യം സജജമാണ് സമുദ്രത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അനിവാര്യമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി

ഇന്ന് രാവിലെ അക്കാദമിയിൽ നടന്ന പ്രൌഡൂ ശ്രൂഭൂർമായ ചടങ്ങിലാണ് രാഷ്ട്രപതി പുരസ്കാരം സമ്മാന്ദിച്ചത് അക്കാദമി കേഡറ്റുമാർ നൽകിയ ഗാർഡ് ഓഫ് ഹോണ്ട്റും രാഷ്ട്രപതി പരിശോധിച്ചു

രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ ചോദ്യോത്തരവേള നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളതിനാൽ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് സ്പീക്കറുടെ നിർദ്ദേശം പ്രതിപക്ഷം അംഗീകരിച്ചില്ല

ശൂന്യവേളയിൽ അടിയന്തരപ്രമേയ നോട്ടീസ് പരിഗണിച്ചപ്പോഴാണ് സഭ വീണ്ടും പ്രക്ഷുബ്ധമായത് പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ വേദിയിൽ കയറി മുദ്രാവാക്യം വിളിച്ചതോടെ സ്പീക്കർ സഭാ നടപടികൾ നിറുത്തിവെച്ചു

പി ജയരാജൻ അറിയിച്ചു

എ അടക്കമുള്ള കെ

യു പ്രവർത്തകർക്കു നേരെ പോലീസ് നരനായാട്ടാണ് നടത്തിയതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വി ടി ബൽറാം പറഞ്ഞു

എ യ്ക്കു പരിക്കേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെന്റു ചെയ്താൽ മാത്രമേ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാനാകൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

യ്ക്ക് പോലീസ് മർദ്ദനമേറ്റതിലും മാർക്ക് തട്ടിപ്പിലും പ്രതിഷേധിച്ച് തിരുവനന്തപുരത്തും കൊച്ചിയിലും കെ

യു പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു

കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്

എസ് യു പ്രവർത്തകർക്കു നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ്ട്രബന്ദ് ആചരിച്ചു

യൂണിയനുകളുമായും ഉദ്യോഗസ്ഥരുമായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കമ്മിഷൻ കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ ദിവസവേതന നിരക്ക് ഉയർന്നതാണെന്ന് കമ്മിഷൻ വിലയിരുത്തി ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ശുചീകരണ തൊഴിലാളികളുടെ സാഹചരൃം നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു തൊഴിൽ പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായും നഗരസഭാ സെക്രട്ടറിമാരുമായും കമ്മിഷൻ കൂടിക്കാഴ്ച നടത്തി

ശ്യമ പ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശ് ജാവ്ദേക്കർ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നൽകുന്ന സുവർണ ജൂബിലി ഐക്കൺ അവാർഡ്ട്സൂപ്പർ താരം രജനീകാന്ത് ഏറ്റുവാങ്ങി ബോളിവുഡ് താരൂപ്പിൽമിതാഭ് ബച്ചൻ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ബ്രോളിവുഡ് സംവിധായകൻ കരൺ ജോഹർ എന്നിവർ സംബന്ധിച്ചു

നിയമസഭയിൽ അബ്ദുറഹ്മാൻ എം

എ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനതല സമാപനസമ്മേളനം പൊതൂവിദ്യാഭ്യാസമന്ത്രി പ്രൊഫ സി

കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും വില വർധന കർഷകർക്ക് പ്രതീക്ഷ പകരുന്നു

സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ൃ ഉത്തർവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ ആരോപിണ്ട് ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവണ്മെന്റിന്റെ നിലപാടും നയവും അറിയേണ്ടത് ഉണ്ടെന്നും ഇരുവരും പറഞ്ഞു കെ സുരേന്ദ്രൻ തീവ്രവാദ വിഷയത്തിൽ സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മോളനത്തിൽ ആരോപിച്ചു പാർട്ടിമെമ്പർമാർ യു എ പി എ കേസിൽ പ്രതിക്കൂട്ടിലായതിനാലാണ് ഇപ്പോൾ നിലപാട് മാറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു

രാവിലെ അഷ്ടമിദർശനത്തിനെത്തിയ ഭക്തരിലേറെയും അഷ്ടമിവിളക്ക് തൊഴാൻ കാത്തിരിക്കുകയാണ്

കൊലപാതക പരമ്പരയില്ല് ആദ്യ ഇര പൊന്നാമറ്റം വീട്ടിൽ അന്നമ്മയുടെ മൂർണ്റ്വുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണസംഘം ജോ്ളിയെ അറസ്റ്റ് ചെയ്തത്